താഴ്വരയിൽ ഗവൺമെന്റ് ഓഫ്ടീസുകൾ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചതോടെ ജമ്മുകാശ്മീരിൽസ്ഥിതിഗതികൾ സാധാരണനിലയിലേക്ക് ജമ്മു ഡിവിഷനിലെ അഞ്ച് ജില്ലികളിൽ മൊബൈൽ ഇന്റർനെറ്റ് സേവനം പുനഃസ്ഥാപിച്ചു

പ്രധാനമന്ത്രിയുടെ സന്ദർശന വേളയിൽ പത്ത് ധാരണാപത്രങ്ങളിലും ഇരുരാജ്യങ്ങളും ഒപ്പുവച്ചു

കൂടുതൽവിവരങ്ങളുമായിരഞ്ജിത്ത്

കാൻപൂർ ഡൽഹി ഐ ഐ ടികളുട് തമ്മീലാണ് മൂന്ന് ധാരണാപത്രങ്ങൾ ജല വൈദ്യുത മേഖലയിൽ ഇന്ത്യ ഭൂട്ടാൻ സൌഹൃദത്തിന്റെ അരനൂറ്റാണ്ട് പിന്നിടുന്ന സാഹചര്യത്തിൽ ഇരു പ്രധാനമന്ത്രിമാരും ചേർന്ന് പ്രത്യേക സ്റ്റാമ്പ് പുറത്തിറക്കി ദ്ദക്ഷിണേഷ്യൻ ഉപഗ്രഹത്തിനായുള്ള ഗ്രൌണ്ട് സ്റ്റേഷന്റെയും ശിലാഫലിക്ട്പു് ഇരു നേതാക്കളും ചേർന്ന് അനാച്ഛാദനം ചെയ്തു ഉന്നത പ്രതിനിധി ചർച്ചയും നടന്നു

ഭൂവിസ്തൃതിയിൽ ഇരുരാജ്യങ്ങളും തമ്മിൽ അന്തരങ്ങളുണ്ടാകാം എന്നാൽ വിശ്വാസങ്ങളും മൂല്യങ്ങളും ഇരു രാജൃങ്ങളിലെയും ജനങ്ങൾ ഒരുപോലെ കാത്തുസൂക്ഷിക്കുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു

നേരത്തെ പാരോ വിമാനത്താവളത്തിൽ ഭൂട്ടാൻ പ്രധാനമന്ത്രി ഡോ ലോട്ടെ ഷെറിങ് അടക്കമുള്ള ഉന്നത നേതാക്കൾ പ്രധാനമന്ത്രിക്ക് ഉഷ്മളമായ വരവേൽപ്പ് നൽകി

ന്യൂസ്ഡെസ്ക്ആകാശവാണി

ഗവൺമെന്റ് ഓഫീസുകൾ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചതോടെ കാശ്മീർ താഴ്വര സാധാരണ നിലയിലേക്ക് മടങ്ങിയെത്തി

ജമ്മു രേശി സാംബ കത്വവ ഉധംപൂർ എന്നീ അഞ്ച് ജില്ലകളിലെ മൊബൈൽ ഇന്റർനെറ്റ് സേവനം പുനഃസ്ഥാപിച്ചിട്ടുണ്ട് ശ്രീനഗർ നഗരത്തിലും ബഡ്ഗാം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലും ലാൻഡ് ലൈൻ സേവനങ്ങളും ലഭ്യമായിത്തുടങ്ങി വാർത്താ വിനിമയ ബന്ധങ്ങൾ ഘട്ടം ഘട്ടമായി സാധാരണ നിലയിലേക്ക് മടങ്ങുമെന്ന് നേരത്തെ ചീഫ് സെക്രട്ടറി ബിവിആർ സുബ്രഹ്മണ്യം വ്യക്തമാക്കിയിരുന്നു

നൌഷെരാ സെക്ടറിൽ പാക്സേന നട്ടത്തിയ് വെടിനിർത്തൽ കരാർലംഘനത്തിൽ ഒരു സൈനികന് വീരമൃത്യു രജൌരി ജില്ലയിൽ ഇന്ന് രാവിലെ ആയിരുന്നു ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെയും ജനവാസകേന്ദ്രങ്ങൾക്ക് നേരെയും പാക്സേന ആക്രമണം നടത്തിയത് ലാൻസ് നായിക് സന്ദീപ് താപെയാണ് പാക് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഇന്ത്യൻ സേന ശക്തമായി തിരിച്ചടിച്ചു

ഐക്യരാഷ്ട്ര സഭ സുരക്ഷാ കൌൺസിലിൽ വിഷയം ഉന്നയിച്ച് അന്താരാഷ്ട്ര തലത്തിൽതന്നെ ഇതു ചർച്ചയാക്കാനുള്ള പാക് ശ്രമം ഇന്ത്യൻ നയതന്ത്ര വൈദഗ്ദ്ധ്യത്തിൽ പാളി ഒരുറിപ്പോർട്ട്

എൻ രക്ഷാസമിതിയുടെ അനൌദ്യോഗിക യോഗമാണ് ഇന്നലെ വിഷയം ചർച്ച ചെയ്തത് സുരക്ഷാ കൌൺസിലിലെ ഒട്ടുമിക്ക അംഗങ്ങളും ഇന്ത്യൻ നിലപാടിനെ പിന്തുണച്ചത് പാകിസ്ഥാന് തിരിച്ചുടിയായി

ചൈനയുടെ അഭ്യർത്ഥനയെതുടർന്നാണ് വിഷയം ചർച്ച ചെയ്യാൻ സുരക്ഷാ കൌൺസിൽ അനൌദ്യോഗിക യോഗം ചേർന്നത് യോഗത്തിൽ ചൈന മാത്രമാണ് പാകിസ്ഥാന് പിന്തുണ നൽകിയത് മറ്റ് സ്ഥിരാംഗങ്ങളായ ബ്രിട്ടൺ ഫ്രാൻസ് റഷ്യ അമേരിക്ക എന്നീ രാജ്യങ്ങൾ കാശ്മീർ വിഷയം ഉഭയകക്ഷി ചർച്ചകളിലൂടെ പരിഹരിക്കണമെന്ന് നിലപാടെടുത്തു വികസനത്തിന് നാന്ദി കുറിക്കാൻ ഗവൺമെന്റ്എടുത്ത തീരുമാനത്തെ പിന്തുണച്ച സുരക്ഷാ കൌൺസിലിന്റെ നിലപാടിൽ ഇന്ത്യ നന്ദി അറിയിച്ചു കാശ്മീർ വിഷയത്തിൽ ഇന്ത്യ എക്കാലവും സുദ്യഢമായ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളതെന്ന് ഐക്യരാഷ്ട്ര സ്ട്ട്രിയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി സെയ്ദ് അക്ബറുദ്ദീൻ പ്ലാണ്ഞ്തിു ഭീകരാന്തരീക്ഷത്തിൽ ഒരു നയതന്ത്ര ചർച്ചയും വിജയിക്കി്ല്ലെന്നും ജനാധിപത്യത്തിന് ഭീകരത കടുത്ത വെല്ലുവിളി ഉണർത്തുന്ന്തായും അക്ബറുദ്ദീൻ പറഞ്ഞു ന്യൂസ്ഡെസ്ക്ആകാശവാണി

വാർധായിലെ സേവാഗ്രാമിൽ മഹാത്മാഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ നടന്ന സുവർണ് ജൂബിലി ആഘോഷചടങ്ങിൽ വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മഹാരാഷ്ട്ര ഗവർണർസി വിദ്യാസാഗർറാവു മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു മഹാത്മാഗാന്ധിയുടെ ജീവിതത്വങ്ങൾ വിദ്യാർത്ഥികൾ പഠനവിധേയമാക്കണമെന്നും രാഷ്ട്രപതി പറഞ്ഞു നേരത്തെ സേവാഗ്രാമിലെ ഗാന്ധി ആശ്രമം സന്ദർശിച്ച് രാഷ്ട്രപതി ബാപ്പുവിന് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു

ലിത്വാനിയ ലാത്വിയ എസ്റ്റോണിയ എന്നീ രാജ്യങ്ങളിലാണ് ഉപരാഷ്ട്രപതിയുടെ സന്ദർശനം

ബാൾട്ടിക് രാജ്യങ്ങളിലേക്ക് ഇന്ത്യയിൽ നിന്നും ആദ്യ ഉന്നതതല സന്ദർശനമാണിത്

എൽ എ കപിൽ മിശ്രയും വനിതാ നേതാവ് റിച്ചാ പാണ്ടേയും പ്രവർത്തകരോടൊപ്പം ഇസ്റ്റ് ബി ജെ

ന്യൂഡൽഹിയിലെ ബി ജെ

ജെ

ഉപ്പാദ്ധ്യക്ഷൻ ശ്യാംജാജു ഡൽഹി യൂണിറ്റ് മേധാവി മനോജ് തിവായ്ക്ക് എന്നിവരുടെ സാന്നിധൃത്തിലാണ് ഇരുവരും അംഗത്വം സ്വീകരിച്ചത്

നേതാവ് മായാവതിയും ഇന്ന് മുൻ ധനകാര്യമന്ത്രി അരുൺ ജെയ്റ്റ്ലിയെ ന്യൂഡൽഹിയിലെ ആൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ സന്ദർശിച്ചു

ശാസതടസ്സത്തെ തുടർന്ന് കഴിഞ്ഞ ഒമ്പതിന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ശ്രീ ജെയ്റ്റ്ലി ഇപ്പോഴും തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്

മഴയ്ക്ക് ശമനമുണ്ടായതോടെ ദൂരന്ത ബാധിത പ്രദേശങ്ങളിലെ രക്ഷാ പ്രവർത്തനങ്ങളും ഉൌർജ്ജിതമായി തുടരുകയാണ് ജാഗ്രഗാ മുന്നറിയിപ്പുകളും പിൻവലിച്ചിട്ടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി രഞ്ജിത്

മൃതദേഹം ആരുടേതാണെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല

മലപ്പുറം കവളപ്പാറയിലും വയനാട് പുത്തുമലയിലും അവസാന ആളെയും കണ്ടെത്തുന്നതുവരെ തെരച്ചിൽ തുടരുമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി വ്യക്തമാക്കി മഴ കുറഞ്ഞതോടെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവരുടെ എണ്ണത്തിലും കുറവുണ്ടായി

മലപ്പുറം ജില്ലയിലും രണ്ടായിര്ത്തിനടുത്ത് വീടുകൾ തകർന്നു ന്യൂസ് ഡെസ്ക് ആകാശവാണി

സന്നിധാനത്ത് നടന്ന നറുക്കെടുപ്പിലൂടെയാണ് ഇവരെ തെരഞ്ഞെടുത്തത് ചിങ്ങമാസ പൂജകൾക്കായി നട തുറന്ന ശബരിമല ക്ഷേത്രത്തിൽ മാസപ്പിറവി ദിനമായ ഇന്ന് വമ്പിച്ച ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെട്ടത്

ദ്രോണാചാര്യ അവാർഡിന് മുൻ ബാഡ്മിന്റൺ താരം വിമൽ കുമാറിനെയും മറ്റ് മൂന്ന് പേരെയും ശുപാർശ ചെയ്തിട്ടുണ്ട്

ഷെൻസൻ മേഖലിയില്ലേയ്ക്കുള്ള സൈനികരുടെ നീക്കത്തെ സംബന്ധിച്ച് വന്ന ക്ലെച്സ്ട്രീസ് മാധ്യ വാർത്തകൾ വലിയ പ്രതിഷേധമാണ് ഉണ്ടാകുന്നതെന്ന് സൂചനയാണ് നൽകുന്നത്

കേന്ദ്ര പട്ടികവർഗ്ഗ ക്ഷേമമന്ത്രി അർജ്ജുൻ മുണ്ട ഉദ്ഘാടനം നിർവ്വഹിച്ചു